രാജ്യത്തിന്റെ ഭാവി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസനയമെന്ന് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന ഗവർണർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ഭാഷകൾ കല സംസ്കാരം എന്നിവയ്ക്ക് നയം മുൻഗണന നൽകുന്നുണ്ട് ഇത് വിദ്യാർത്ഥികളിൽ സർഗ്ഗാത്മക സാധ്യതകൾ വികസിപ്പിക്കുകയും ഇന്ത്യൻ ഭാഷകളെ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയുടെ ഐക്യം നിലനിർത്തുകയും ചെയ്യുമെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു

എല്ലാ മേഖലകളിലും ഗുണനിലവാരമുള്ള അക്കാദമിക് ഗവേഷണത്തിന് പ്രചോദനം നൽകുന്നതിനായി ഒരു ദേശീയ ഗവേഷണ ഫൌണ്ടേഷൻ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് രാജ്യത്ത് മികച്ച അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ കാമ്പസുകൾ തുറക്കാനും പാവപ്പെട്ട വിദ്യാർത്ഥിക ൾക്ക് കൂടുതൽ അവസരം നൽകാനും വഴിയൊരുക്കുന്നതാണ് വിദ്യാഭ്യാസ നയമെന്നും വീഡിയോ കോൺഫറൻസിംഗിലൂടെ അദ്ദേഹം പറഞ്ഞു

പുതിയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച അഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമായി കേന്ദ്രം വിവിധ തലങ്ങളിൽ സ്മ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്

സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ സർവകലാശാല വൈസ് ചാൻസലർമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്

കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് സർവീസ് നടത്തുന്നതെന്ന് കേന്ദ്രനഗരകാര്യ മന്ത്രാലയം സെക്രട്ടറി ദൂർഗ ശങ്കർ മിശ്ര പറഞ്ഞു

കൊച്ചിയിൽ ഇന്നും നാളെയും രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും ഉച്ചതിരിഞ്ഞ് രണ്ട് മണി മുതൽ എട്ട് മണി വരെയും ആയിരിക്കും സർവ്വീസ് നടത്തുന്നത്

ടിക്കറ്റുകളുടെ മുഴുവൻ തുകയും തിരിച്ചു നൽകീൻ കഴിയാത്ത പക്ഷം ശേഷിക്കുന്ന തുകയ്ക്ക് തുല്യമായ ക്രെ്ഡിറ്റ് ഷെൽ സൌകര്യം യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്നും കേന്ദ്രസർക്കാർ വ്യക്തമാക്കി

ഇന്ത്യ മറികടക്കും വിദ്യാഭ്യാസ മേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി അംഗ രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വൃക്തമാക്കി

മെട്രോ തൃപ്പുണ്ണിത്തുറ വരെ നീട്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി

ദിനാചരണത്തോടനുബന്ധിച്ചു സംഘടിപ്പിക്കുന്ന വെബിനാറിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്യൂ പ്രകാശ് ജാവ്ദേക്കർ അദ്ധ്യക്ഷനാവും ദേശീയ ശുദ്ധവായു പദ്ധതിയുടെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്യും

ചന്ദ്രയാൻ രണ്ടിന് സമാനമായി ലാൻഡറും റോവറും ഉൾപ്പെടുന്നതാവും ചന്ദ്രയാൻ മൂന്ന് ദൌത്യം എന്നാൽ ഈ ദൌത്യത്തിൽ ഓർബിറ്ററിന്റെ സാന്നിധ്യമുണ്ടാകില്ല

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക തയ്യാറെടുപ്പുകളോടെയാണ് സഭാ സമ്മേളനത്തിന് തുടക്കമായത്

അക്കാലത്തു ഏറ്റവുമധികം വായനക്കാരുണ്ടായിരുന്നു കൂജറാത്തി പത്രമായിരുന്നു നവജീവൻ

ഹെറോയിൻ കടത്തുമായി ബന്ധപ്പെട്ട് ഒരു ആഫ്രിക്കൻ സ്വദേശിയും മൃാൻമർ സ്വദേശിയായ സ്ത്രീയും ഉൾപ്പടെ ഏഴു പേരെ പിടികൂടി

രണ്ടു വിമാനങ്ങളിലായി എത്തിയ മൂന്നു യാത്രക്കാരാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്

ഫ്രീ ബലൂചിസ്ഥാൻ പ്രസ്ഥാന നേതാവ് ഹയാത്ത് ബലൂച്ചിന്റെ കൊലപാതകത്തിനെതിരെയാണ് പ്രതിഷേധം ജർമ്മനിയിലെ ഹാംബർഗിൽ നൂറുകണക്കിന് ബലൂച് പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു

എസ് ഓപ്പൺ പുരുഷവിഭാഗം ് മത്സരങ്ങളിൽ നിന്ന് പുറത്തായി ലൈൻ ജഡ്ജിയുടെ മേൽ പന്ത് തട്ടി എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കിയത്